രാജ്യത്തെ കർഷകർക്ക് വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രേമോദി കർഷക ബില്ലിനെതിരെ പ്രതിപക്ഷം നടത്തുന്നത് അനാവ്ശ്യ സമരമാണെന്നും പ്രധാനമന്ത്രി

ചട്ടമ്പിസാമിക്കും തലസ്ഥാന നഗരിയിൽ സർക്കാർ സ്മാരകം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണഗുരുവിന്റെ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു

യുദ്ധക്കപ്പലുകളിലെ ഹെലികോപ്റ്റർ പറത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബാച്ച് വനിത ഉദ്യോഗസ്ഥർ കൊച്ചി നാവിക സേന അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി

സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു

കർഷക ബില്ലുകൾ പ്രധാനമന്ത്രി കാർഷിക രംഗത്ത് വൻ വിപ്ളവത്തിന് വഴിവയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അവതരിപ്പിച്ച കർഷക ബില്ലുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാങ്കേതികവും ഘടനാപരവുമായ വികസനം ആവശ്യമായ ഇൻഡ്യൻ കാർഷിക രംഗത്തിന് അങ്ങേയറ്റം അനുയോജ്യമായ വൃവസ്ഥകളാണ് ബില്ലിലുള്ളത് രാജ്യത്തെ കർഷകർക്ക് യന്ത്രവൽകൃത കൃഷിയിലൂടെ കൂടുതൽ ഉത്പാദനം ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാർഷിക രംഗ്രത്ത് മധ്യവർത്തികളുടെ സ്വാധീനം ഇല്ലാതാക്കുന്നതും ബില്ലിന്റെ ലക്ഷ്യമാണ് രാജ്യത്തെ കർഷകർക്ക് അവരുടെ ഉത്പന്നങ്ങൾക്ക് കുറഞ്ഞ വില ലഭ്യമാക്കുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞ്ബദ്ധമാണെന്നും പ്രധാനമന്ത്രി ഓർമിപ്പിച്ചു അതേസമയം ബില്ലിനെതിര്രെ പ്രതിപക്ഷം നടത്തുന്നത് അനാവശ്യ സമരമാണെന്നും ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുദ്ദേശീച്ചുള്ളതാണെന്നും ശ്രീ നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കേന്ദ്രമന്ത്രി ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉത്പന്നങ്ങൾ കൂടുതൽ വില കിട്ടുന്നിടത്ത് വിൽക്കാനുള്ള അവസരമാണ് കർഷക നിയമത്തിലൂടെ വരാൻ പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി വി

സസ്പെൻഷനിലായ എം പിമാർ വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

പി മാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള കെ കെ രാഗേഷ് എളമരം കരീം എന്നിവർ ഉൾപ്പെടെയുള്ള എം

സഭാ നടപടികൾക്ക് നിരക്കാത്ത വിധം ബഹളം ഉണ്ടാക്കിയ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് കാണിച്ച് പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ കൊണ്ടുവന്ന പ്രമേയത്തെ തുടർന്നാണ് സഭാദ്ധ്യക്ഷനായ എം

ഇത് കൂടാതെ ഉണ്ടായ മരണങ്ങൾ എൻ ഐ വി ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്

കോഴിക്കോട് രണ്ട് വീടുകൾ പൂർണ്ണമായും ആറ് വീടുകൾ ഭാഗികമായും തകർന്നു കണ്ണൂരിൽ അഴിമുഖം ആറളം പുളിക്കൽ പയ്യാവൂർ തുടങ്ങിയ മേഖലകളിൽ കനത്ത മഴ അനുഭവപ്പെട്ടു

എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ് കാസർകോട്ട് വെള്ളക്കെട്ടിൽ വീണാണ് ചെറുവത്തൂർ കോളായി സുധൻ മധൂർസ്വദേശി ചന്ദ്രശേഖരൻ എന്നിവർ മരിച്ചത് മുൻകരുതലിന്റെ ഭാഗമായി ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു

ബാക്കിയുള്ളവർ ഒഴുകുന്ന ചങ്ങാടത്തിൽ പിടിച്ചു കിടക്കുകയായിരുന്നു

ഇത് കണ്ണക്കിലെടുത്ത് കരമാൻ തോട് പനമരം പുഴ എന്നിവയുടെ ഇരുകർകളിലും വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോ അദീല അബ്ദുള്ള നിർദ്ദേശം നൽകി മു കേരളം അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസറഗോഡ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി സ്മാരകമായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കി സമൂഹത്തെ ശുദ്ധീകരിക്കാനാണ് ഗുരു ഇടപെട്ടത് എന്നാൽ ഇപ്പോൾ പല ദുരാചാരങ്ങളും അനാചാരങ്ങളും മടങ്ങിവരുന്നത് നാം ഗൌരവത്തോടെ കാണണം

കേരളത്തിലെ മറ്റൊരു നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമിക്കും തലസ്ഥാന നഗരിയിൽ സർക്കാർ സ്മാരകം സ്ഥാപിക്കുമെന്നും ശ്രീ പിണറായി വിജയ്ൻ അറിയിച്ചു

സംസ്ഥാനത്ത് ഗുരുക്ഷേത്രങ്ങളിലും ആത്മീയ കേന്ദ്രങ്ങളിലും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു

അൽഷിമേഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം അൽഷിമേഴ്സ് രോഗലക്ഷണങ്ങളെ കുറിച്ച് സൈക്യാട്രി വിദഗ്ധനായ ഡോ